പദ്ധതി ഈ മാസം പൂർത്തിയാക്കൂമെന്ന് റവന്യൂ മന്ത്രി

ബിരുദ സിലബസ് പ്പരിഷ്ക്കരിക്കണമെന്ന് മന്ത്രി കെ ടി ജലീൽ

ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയെന്ന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാടിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇൌ നേട്ടത്തിനുപിന്നിൽ തൃക്കാക്കരയിൽ എറണാകുളം ജില്ലയിലെ ആറാമത് പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടയ വിതരണത്തിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച കസ്റ്റംസ് വകുപ്പിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണ്ണകൂടം ഒരുക്കിയ അനുമോദസമ്മേളനം മറ്റൊരു ചടങ്ങിൽ ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു

അഫിലിയേറ്റഡ് കോളേജുകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉന്നതവിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇതിൽ പരമാവധി അന്താരാഷ്ട്ര പ്രശസ്തിയാർജ്ജിച്ച ഗവേഷണഅക്കാദമിക സ്ഥാപനങ്ങളെ പങ്കെടുപ്പിക്കണം അപേക്ഷ സ്വീകരിക്കൽ മുതൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതുവരെയുള്ള എല്ലാ സേവനങ്ങളും ആറുമാസത്തിനുളളിൽ ഓൺലൈനാക്കണമെന്നും മന്ത്രി നിർദേശിച്ചു

നിലവിൽ സംസ്ഥാനത്തെ സഹകരണമേഖലയിൽ നിന്നും പങ്കാളിത്തം കുറവായ സാഹചര്യത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്രചരണ പരിപ്പാട്ടികളും പദ്ധതികളും നടപ്പിലാക്കുമെന്നും അദ്ദേഹം തിരുവിന്ന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കൊച്ചി മയക്കുമരുന്ന് കടത്തിന്റെ ഹബ്ബായി മാറിയെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

മയക്കുമരുന്ന് കള്ളക്കടത്ത് കണ്ടെത്താൻ കൊച്ചി വിമാനത്താവളത്തിൽ അത്യാധുനിക സ്കാനിംഗ് മെഷീൻ സ്ഥാപിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു

വിജയികൾക്ക് കൃാഷ് പ്രൈസ് ഉൾപ്പെടെ സമ്മാനങ്ങൾ നല്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു

കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സിയാൽ എം

ബ്രെയിൽ ദിനം കാഴ്ചപരിമിതർക്കായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്കൂളിനെ ഹൈടെക് ആക്കുമെന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

കാഴ്ച്പരിമിതർക്കായുള്ള ഗവൺമെന്റ് സ്കൂളിന്റെയും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെയും ആഭിമുഖൃത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടനം അന്താരാഷ്ട്ര ബ്രെയിൽ ദിനാഘോഷം ചെയ്യുകയായിരന്നു അദ്ദേഹം

സി ഇൻട്രോ കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ നടന്ന സംഘർഷത്തിൽ കെ എസ്

സി ബസുകൾക്കുണ്ടായ നാശനഷ്ടം ഭീമമാണ് പൊതുവെ നഷ്ടത്തിലോടുന്ന ഈ ജനകീയ വണ്ടിയെ ഇനി വരുന്ന പ്രതിഷേധദിനങ്ങളിലെങ്കിലും ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രൂീയ കക്ഷികളും മുൻകൈയ്യെടുക്കണമെന്ന പ്പി അപേക്ഷയുമായി കെ

ജെ പി ആർ എസ് എസ്

ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കേണ്ട സമര പ്രചാരണ പരിപാടികളെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു

സ്ത്രീകൾക്ക് നേരെ നിരന്തരം അക്രമണമുണ്ടാവുന്നതിൽ വനിതാ കമ്മീഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി

ദക്ഷിണേന്തൃയിൽ നിന്നുളള എം

അതേസമയം ശബരിമല വിഷയത്തിൽ ക്രമസ്മാധാന പ്രശ്നമുണ്ടാക്കുന്നതായി ആരോപിച്ച് ഇടതു പക്ഷ എം

മാരും പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി

പി നിരാഹാരമിരുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ശിവരാജനെ ആരോഗൃനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ പി എം വേലായുധൻ നിരാഹാരം ആരംഭിച്ചു

സമീപത്തു കൂടി പോകുന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് തീപ്പൊരി വീണ് ഇവിടെയുണ്ടായിരുന്ന മാലിന്യത്തിനു തീപിടിച്ചാണ് കടകളിലേക്ക് പടർന്നത്